കൈവരിച്ചതായി പ്രധാനമന്ത്രി ഉത്തരാഖണ്ഡിൽ ഐ

പി ജവാൻമാരോടും സൈനികരോടുമൊപ്പം ദീപാവലി ആഘോഷത്തിൽ ശ്രീ

തുടരുന്നതിനിടെ മുന്ന് മന്ത്രിമാർകൂടി അധികാരമേറ്റു

ഇടക്കാല തെരഞ്ഞെടുപ്പ് ഫലം വൻ വിജയമെന്ന് യു

മൽസ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് വീട് അറ്റകുറ്റപ്പണി നടത്തുന്നതിന് പ്രത്യേക പാക്കേജ് നടപ്പാക്കും

ഉത്തരാഖണ്ഡിലെ ഹർസിലിൽ കരസേനയിലെയും ഇൻഡോ ടിബറ്റൻ ബോർഡർ പൊലീസിലെയും ജവ്യാൻമാരോടൊപ്പം ഇന്നലെ ദീപാവലി ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയായിരുന്നു പ്രധാനമന്ത്രി

അതിർത്തി സംരക്ഷിക്കുന്ന ജവാൻമാരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ്

ജവാന്മാരുടെ സമർപ്പണമാണ് രാജ്യത്തെ ജനങ്ങളെ ഭയരഹിതരാക്കുന്നത്

അന്താരാഷ്ട്ര സമാധാന ദൌതൃങ്ങളിലും ഇന്ത്യൻ സൈനികർ വഹിക്കുന്ന പങ്ക് നിസ്തുലമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

സൈനൃത്തിനെതിരായ തെറ്റായ വാർത്തകളിൽ നിന്ന് അകലം പാലിക്കാനും പ്രതിരോധമന്ത്രി നിർദ്ദേശിച്ചു അരുണാചൽ പ്രദേശിലെ ഹായുലിയാങ്ങിൽ ഇന്നലെ ദീപാവലി ആഘോഷത്തിനിടെ ജവാൻമാരോട് സംവദിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി

നിർമ്മലാസീതാരമൻ അറ്റിയിച്ചു

വിശദാംശങ്ങളുമായി ഷീജ

ഇന്നലെ വൈകുന്നേരം മുതൽ സന്നദ്ധ് സംഘടനകളുടെ സമരം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുക്യാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മൂന്നംഗ പ്രതിനിധി സംഘം ച്ചൊപ്പാഴ്ച സന്നദ്ധ സംഘടനകളുടെ പ്രതിനിധികളുമായി ഐസ്വാളിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു സംഘടനകളുടെ ആവശ്യങ്ങളും ഇവർ ഉയർത്തിയ ആശങ്കകളും പ്രതിനിധി സംഘം പിന്നീട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചു ഏകോപന സമിതി പാസാക്കിയ പ്രമേയത്തിന്റെ അന്തസത്ത ഉൾക്കൊള്ളുന്നതായി കമ്മീഷൻ വൃത്തങ്ങൾ പിന്നീട് വ്യക്തമാക്കി എന്നാൽ സമരത്തോടനുബന്ധിച്ച് കൊലാസിബ് ജില്ലയിൽ അരങ്ങേറിയ അക്രമ സംഭവങ്ങളില കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്കണ്ഠ രേഖപ്പെടുത്തി

എ മാരാണുളളത്

ബന്ധപ്പെട്ട മേഖലയിൽ മൂന്ന് വർഷം പ്രവർത്തന പരിചയമുള്ളവർക്ക് വിദേശ വായ്പ സ്വീകരിക്കാമെന്ന് ആർബിഐ പുറത്തിറക്കിയ വിജ്ഞാപനം വൃക്തമാക്കുന്നു

കേന്ദ്രഗവണ്മെന്റുമായി കൂടിയാലോചിച്ചാണ് പുതിയ വൃവസ്ഥ കൊണ്ടു വരുന്നതെന്ന് റിസർവ്വ് ബാങ്ക് അറിയിച്ചു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

പ്രധാന മന്ത്രി രാജപക്സേയുടെ ഗവൺമെന്റിനെ പിൻതുണയ്ക്കാൻ തയ്യാറല്ലെ്സ്റാണ് മിക്ക ചെറു പാർട്ടികളുടെയും നിലപാട് എന്നാൽ പുറത്ത്ക്ക്പ്പെട്ട റെനിൽ വിക്രമ സിംഗെ സഭയിൽ ഭൂരിപക്ഷം ത്തെ്ളിയിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്

ജനപ്രതിനിധി സഭയെ പ്രതിപക്ഷ പാർട്ടിയായ ഡമോക്രാറ്റുകൾ വിജയം നേടിയ പശ്ചാത്തലത്തിൽ വാർത്താലേഖകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

അമേരിക്കൻ ജനതയ്ക്ക് വിവിധ മേഖലകളിൽ മെച്ചപ്പെട്ട സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് ഡെമോക്രാറ്റിക് നേതൃത്വവുമായി സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള സന്നദ്ധതയും ട്രംപ് പ്രകടിപ്പിച്ചു സാമ്പ്രിത്തിക വളർച്ച അടിസ്ഥാന സൌകര്യ വികസനം ചികിൽസാ ചെല്പ്പിലെ കുറവ് തുടങ്ങിയ മേഖലകളിൽ റിപ്പബ്ലിക്കൻമാരുമൌത്ത് വേറിട്ട പാതയിൽ സഞ്ചരിക്കാൻ തയ്യാറാണ്ണെന്നു് ട്രെംപ് വ്യക്തമാക്കി

ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടി സെനറ്റ് നിലനിർത്തി സെനറ്റിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സീറ്റു നില വർദ്ധിച്ചത് ജനങ്ങളുടെ അംഗീകാരമായി കാണുമെന്നും പ്രസിഡന്റ് പറഞ്ഞു മന്ത്രിസഭയിലും മുതിർന്ന ഉദ്യോഗസ്ഥൻമാരുടെ നിയമനത്തിലും മാറ്റങ്ങൾ ഉണ്ടായേക്കുമെന്നും ട്രംപ് സൂചിപ്പിച്ചു

ഡമോക്രാറ്റിക് പാർട്ടിയെ പ്രതിനിധീകരിച്ചാണ് നാലു പേരും സഭയിലെത്തിയത്

കാലിഫോർണിയയിലെ ഏഴാം ്യൂ കോൺഗ്രസ് മണ്ഡലത്തിൽ തുടർച്ചയായ നാലാംതുവിന്ന് ഡോ

സംസ്ഥാന നിയമ്സഭകളിലും ഇന്ത്യൻ വംശജർ മികച്ച പ്രകടനമാണ് കീഴ്ച്ചവച്ചത്

കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി സെഷൻസ് പൊതുവേദികളിൽ പങ്കെടുക്കുന്നതിലും മാധ്യമങ്ങളെ അഭിമുഖീകരിക്കുന്നതിലും സെഷൻസിന്റെ പ്രവർത്തനങ്ങളിലും ട്രംപ് അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു

വിടുതലിന് ശേഷം അവർ മറ്റൊരിടത്തേക്ക് യാത്രയായെന്നും എന്നാൽ എവിടെയാണ് അവരെത്തിയതെന്ന് അറിയില്ലെന്നും ആഷിയ ബീവിയുടെ അഭിഭാഷകൻ സെയ്ഫ് ഉൾ മാലൂക് പറഞ്ഞു ഇസ്ലാം മത്തീവ്രവാദികളുടെ കടുത്ത വിമർശനങ്ങൾക്ക് വിധേയയായി ആയിഷ ബീവിയെ കഴിഞ്ഞ ആഴ്ചയാണ് പാക് സുപ്പീംകോടതി ജയിൽ മോചിതയാക്കിയത്

മരണപ്പെട്ടവരിൽ രണ്ട് കുട്ടികൾ ഉൾപ്പെടുന്നതായി പോലീസ് വൃത്തങ്ങൾ പറഞ്ഞു അടുത്തിടെയായി മിക്ക റോഡുകളുടെയും ശോച്യാവസ്ഥ കാരണം സിംബാബ്വെയിൽ അപകടങ്ങൾ പതിവാണ്

കൂടുതൽ വിവരങ്ങൾ പുറത്തു വിട്ടിട്ടില്ല തോക്കുധാരിയായ ഒരാളെയാണ് ഈയാഴ്ചയിൽ ആദ്യം കുട്ടികളെ തൃട്ടിട്ടിക്കൊണ്ടു പോയത്

പുരുഷ സിംഗിൾസ് ഓപ്പണിംഗ് റൌണ്ടിൽ ലോക അഞ്ചാം നമ്പർ താരമായ ശ്രീകാന്ത് ഫ്രാൻസിന്റെ ലൂക്കോസ് കോർവിയെയാണ് നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയത്

റിയോ ഒളിമ്പിക്സ് സിൽവർ മെഡൽ ജോതാവ് പി വി സിന്ധു പ്രീക്വാർട്ടറിൽ സ്ഥാനം നേടിയിട്ടുണ്ട്